പാസഞ്ചർ ടെർമിനലിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവ്വഹിക്കും

പ്രഖ്യാപിക്കും

തന്നെയായാലും സംയ്ക്മനത്തോടെ പ്രതികരിക്കണമെന്ന് പ്രധാനമന്ത്രി രാജൃത്തിന്റെ മതനിരപേക്ഷത കേരളീയർ കാത്തു സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

എടുക്കുന്ന കുടുംബങ്ങളുടെ വരുമാന പരിധി റിസർവ്വ് ബാങ്ക് ഉയർത്തി

ബ്ലാസ്റ്റേഴ്സിന് ഗോൾരഹിത സമനില

സുൽത്താൻപൂർ ലോധിയിലുള്ള ബീർസാഹിബ് ഗുരുദാരയിലും അദ്ദേഹം പ്രണാമം അർപ്പിക്കും

പാകിസ്ഥാനിലെ കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര സന്ദർശിക്കാൻ ഇന്ത്യൻ തീർത്ഥാടകർക്ക് സൌകര്യം ഒരുക്കുന്നതിന് എകീകൃത ചെക്പോസ്റ്റ് സഹായിക്കും

മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിങ് പഞ്ചാബ് മുഖ്യമന്ത്രി അമരേന്ദർ സിങ് കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൌർ ബാദൽ എം പി മാർ പഞ്ചാബിൽ നിന്നുള്ള എം

ഒരു വിമാനത്താവളത്തെ അന്റുസ്മ്രിപ്പിക്കുന്ന പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ടെർമിനലിൽ പ്രൂതിദിനം അയ്യായിരം തീർത്ഥാടകർക്ക് സൌകര്യം ഒരുക്കാൻ ് ആമ്പതിലധികം ഇമിഗ്രേഷൻ കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്

യാത്രയ്ക്ക് വിസയുടെ ആവശ്യമില്ലെങ്കിലും തീർത്ഥാടകർ പാസ്പോർട്ടിനോടൊപ്പം ഒ സി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒരു റിപ്പോർട്ട്

ശനിയാഴ്ച അവധിദിനമായിട്ടും അയോധ്യ കേസിൽ വിധി പറയാൻ ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് രജ്ഞൻ ഗൊഗോയ്ക് പുറമെ ജസ്റ്റിസുമാരായ എസ്

അയ്യോധ്യ ക്കേസിന്റെ വിധി വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷ വർധിപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആഭ്യ്ത്ത്ർ മന്ത്രാലയം നിർദേശം നൽകിയിരുന്നു ഇന്നലെ ചീഫ് ജസ്റ്റിസ് രഞ്ചൂർ ്ഗോഗോയ് യു പി ഭരണകൂടവുമായി സുരക്ഷ സ്ഥിതി വിലയിരുത്തിയിരുന്നു്

അയോധ്യയിൽ ഡിസംബർ അവസാനം വരെ നിരോധനാജ്ഞയും ഏർപ്പെടുത്തി

ബിഹാർ മധ്യപ്രദേശ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലും അതീവജാഗ്രത ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

മതസ്പർധയും സാമുദായിക സംഘർഷങ്ങളും വളർത്തുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങൾ തയാറാക്കി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കും ഇത്തരക്കാരെ ഉടനടി കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാനും ഗവൺമെന്റ് പൊലീസിന് നിർദേശം നല്കി

രാജ്യത്തിന്റെ സമാധാനത്തെയും ഐക്യത്തെയും യശസ്റ്റിനെയും കൂടുതൽ ശക്തമാക്കുന്ന നിലപാടുകളായിരിക്കണം രാജ്യത്തെ പൌരൻമാരിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ആയ്ട്രേധ്യ വിധിയിൽ കേരളത്തിൽ സംയമനത്തോടെയുള്ള പ്രതികരണങ്ങളേ ഉണ്ട്ക്കൂ എന്ന് എല്ലാവരും ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണ്ട്ടായി പ്രിജയൻ ആവശ്യപ്പെട്ടു

ഗ്രാമീണമേഖലകളിലെ ജനങ്ങൾക്ക് വായ്പ ലഭ്യത ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി

മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ദേവേന്ദ്രഫഡ്നാവിസ് ഇന്നലെ രാജി വെച്ചിരുന്നു ഗവൺമെന്റ് രൂപീകരണത്തിന് ബദൽ മാർഗ്ഗങ്ങൾ ആരായുന്നുവെന്ന ശിവസേന മേധാവി ഉദ്ധവ് താക്കറെയുടെ പ്രസ്താവന ആശ്ചര്യപ്പെടുത്തിയതായി പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു രണ്ടര വർഷം വീതം മുഖ്യമന്ത്രി പദം പങ്കിടണമെന്ന കാര്യം ഒരു ഘട്ടത്തിലും ചർച്ചയിൽ വന്നിരുന്നില്ല ചർച്ചകൾക്കുള്ള വഴികൾ അടഞ്ഞിട്ടില്ലെന്നും ശിവസേനയുമായുള്ള ബന്ധം ബി ജെ

വിഛേദിച്ചിട്ടില്ലെന്നും ശ്രീ ഫഡ്നാവിസ് വ്യക്തമാക്കി

ജെ

അധ്യക്ഷൻ അമിത് ഷായും ദേവേന്ദ്ര ഫഡ്നാവിസും മുഖ്യമന്ത്രി പദം തുല്യമായി പങ്കിടുന്നതിന് സമ്മതിച്ചിട്ടുള്ളതായി ഉദ്ധവ് താക്കറെ പറഞ്ഞു

ജെ

യോടൊപ്പമോ അല്ലാതെയോ തന്റെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു

സവാള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സവാളയുടെ കയറ്റുമതി നിരോധിക്കുകയും ചെറുകിട വ്യാപാരികൾക്ക് സവാള സംഭരിക്കാനുള്ള പരിധി നിശ്ചയിക്കുകയും ചെയ്തത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതായി ഉപഭോക്തൃ കാര്യ സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചു രാജ്യത്തെ സവാള ലഭൃത കൂടുതൽ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ നിർണ്ണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ദുബായ് അടക്കമുള്ള വിദേശരാജ്യങ്ങളിൽ നിന്ന് സവാള ഇറക്കുമതി ഉചയ്യും

പരിക്കേറ്റവരെ ആശുപിതിയിൽ പ്രവേശിപ്പിച്ചു ബംഗളൂരു ചെന്നൈ ദേശീയ പാതയിൽ ഇന്നില്ല് രാത്രിയിലാണ് സംഭവം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

കനത്ത മഴയും ഇതോടൊപ്പം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്

സുരക്ഷാ ചുമതലയുള്ള സിആർപിഎഫ് ബറ്റാലിയൻ സേനാംഗങ്ങളാണ് ബോംബ് നിർവീര്യമാക്കിയത്

ദക്ഷിണ മേഖലാ ഐജി എം

തിരുവനന്തപുരം കമ്മീഷണറായിരുന്ന ബൽറാം കുമാർ ഉപാധ്യായ ആണ് പുതിയ ദക്ഷിണമേഖലാ ഐജി കണ്ണൂർ എ

പി ഡി ശിൽപയെ കാസർഗോഡ് എഎസ്പിയായും തൃശൂർ എഎസ്പി ആർ

എക്സിക്യുട്ടീവ് എഞ്ചിനീയർ തോമസ് ജോൺ അസിസ്റ്റന്റ് എക്സിക്യുട്ടീവ് എഞ്ചിനീയർമാരായ ബ്രിജേഷ് ബി അബ്ദുൽ റഹ്മാൻ ഓവർസിയർ ജി സന്തോഷ് കുമാർ എന്നിവർക്ക് എതിരെയാണ് നടപടി

മത്സരത്തിന്റെ ആദ്യപ്ട്ട്ട് മിന്നീറ്റിനുള്ളിൽ തന്നെ രണ്ട് താരങ്ങളെ നഷ്ടമായതും ഒരു പെനാൽറ്റി ൽക്കുവ്ദിക്കാതിരുന്നതുമാണ് ബ്ലാസ്റ്റേഴ്സിന് ്തിരിച്ചടിയായത് രണ്ടാട്ട്ഷക്കുതിയിൽ ഇരുടീമും ആക്രമിച്ച് കളിച്ചെങ്കിലും സമനിലക്കുരുക്ക് ഭേദീക്കാനായില്ല നാലു മത്സരങ്ങളിൽ ഒരു ജയവും ഒരു സമനിലയും രണ്ടും ത്യോൽവിയുമുള്ള ബ്ലാസ്റ്റേഴ്സ് നാലു പോയിന്റുമായി ആറാമതാണ്